ത്തിനായി മുന്നോട്ടുവച്ച് ഉപാധികളുടെ വിശദാംശങ്ങൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൈമാറി

രാജ്യം അവാർഡ് തുക കേന്ദ്രം വർദ്ധിപ്പിച്ചു കൂട്ടായ പരിശ്രമത്തി ലൂടെ ഇന്തൃക്ക് കായിക മേഖലയിൽ മുന്നേറാൻ സാധിക്കു മെന്നു രാഷ്ടപതി

ഉത്തർ പ്രദേശിലെ ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി കേന്ദ്ര കാർഷിക സർവ്വകലാശാലയുടെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവഹിച്ചശേഷം സംസാരിക്കുകയാ യിരുന്നു ശ്രീ മോദി കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികവിളകൾ ക്കും ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർധന ഉറപ്പാക്കി അവയ്ക്ക് രാജ്യത്തിനകത്തും അന്താരാഷ്ട്രതലത്തിലും പിപണി കണ്ടെത്തുക എന്നതാണ് ഗവൺമെന്റിന്റെ പ്രധാന്റ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ക്ടാർഷികമേഖലയിലെ വ്യവസായങ്ങൾ വളരുന്നതോടെ ഗ്രാമങ്ങളില്ല് തൊഴിൽ സാധ്യതകളും വളരെ യധികം വർധിക്കുന്നു മീഡിൽ സ്കൂൾ തലം തൊട്ട് തന്നെ കാർഷിക വിദ്യാഭ്യാസം സിലബസുകളിൽ ഉൾപ്പെടുത്തുന്നതും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്ന് മോദി വൃക്തമാക്കി രാജ്യത്തെ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഗവേഷണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണം എന്നും അദ്ദേഹം ആഹാനം ചെയ്തു ഈ ലക്ഷ്യപ്രാപ്തി നേടുന്നതിന് രാജ്യത്ത് ഇന്ന് മൂന്ന് കേന്ദ്ര കാർഷിക സർവ്വകലാശാലകൾ ആണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു

നാല് കോടി കോവിഡ് പരിശ്ശ്ധ്രനകളെന്ന നാഴികക്കല്ല് ഇന്ത്യ പിന്നിട്ടു

പാർലമെന്റും സംസ്ഥാന നിയമസഭകളും കൂടുന്ന സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡ ങ്ങളും പ്രതിരോധ നടപടികളും ഉൾക്കൊള്ളുന്ന നടപടിക്രമങ്ങൾ തയ്യാറാക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഉത്സവകാലം വരുന്നതിനാൽ എല്ലാവരും ജാഗ്രത കൈ വിടരുതെന്ന് സമിതി ആവശ്യപ്പെട്ടു

വിനോദ് കെ പോൾ അറിയിച്ചു

മാതൃഭാഷയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുകയാണെങ്കിൽ അവർക്ക് വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസിലാക്കുവാൻ സാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു

വ്യാഴാഴ്ച നടന്ന നാല്പത്തിയൊന്നാമത് ജിഎസ്ടി കൌൺസിൽ യോഗത്തി ലെ ചർച്ചുകളുടെ തുടർച്ചയായാണിത്

സ്ഥലത്ത് സൈന്യം വ്യാപക പരിശോധനകൾ നടത്തി

കേരളത്തിൽ സമ്പർക്ക വ്യാപനം കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഓണത്തിന് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണ മെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പു നൽകി

ബി

കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിബിഐ റിയയെ ചോദ്യം ചെയ്തിരുന്നു തന്റെ വീടിനുചുറ്റും ആൾക്കാർ കൂട്ടം കൂടുന്നതായും തനിക്കും കുടുംബത്തുനും നേരെ വധഭീഷണിയുണ്ടെന്നും സുരക്ഷ ലഭ്യമാക്കണമെന്നും റിയ നേരത്തെ ആവശ്യ പ്പെട്ടിരുന്നു

ദേശീയ കായിക ദിനമായ ഇന്ന് ഇക്കൊല്ലത്തെ ദേശീയ കായിക പുരസ്കാരങ്ങളും ധീരതയ് ക്കുള്ള പുരസ്കാരങ്ങളും രാഷ്ട്രപതി വെർചൽ ആയി വിതരണം ചെയ്തു രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം അർജുന പുരസ്കാരം ദ്രോണാചാര്യ പുരസ്കാരം ടെൻസിങ് നോർഗെ ദേശീയ ധീരതാ പുരസ്കാരം രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം എന്നിവ രാഷ്ട്രപതി വിതരണം ചെയ്തു